ആയുർവ്വേദ പഠന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ പാർലമെന്റ് പാസ്സാക്കി

സംസ്ഥാനത്ത് കോവിഡ് രോഗബ്ലാധയിൽ വർദ്ധന

സ്ഥാനാർത്ഥികളുടെ ക്രിമീനൽ പശ്ചാത്തലം ജനങ്ങളെ അറിയിക്കുന്നതിന് ട്ടിരുഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാർഗ്ഗ നിർദ്ദേശം പ്പുറപ്പെടുവിച്ചു

സംസ്ഥാനത്ത് പേവിഷ വാക്സിൻ നിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി രാജു

സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കെ

രാജ്യസഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകി

ഗുജറാത്തിലെ ജാംനഗറിലെ ആയുർവേദ സർവ്വകലാശാല വളപ്പിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുക

രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നു

ശൈലജ ടീച്ചർ കോവിഡ് വ്യാപനം തടയാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനം തുടരണമെന്ന് മന്ത്രി കെ

കോഴിക്കോട്ടെ മലബാർ മെഡിക്കൽ കോളേജ് കെ

ട്ടി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ കോവിഡ് ആശ്ശുപിത്രികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂട്ടെട്ട് ീനിർവഹിക്കുകയായിരുന്നു മന്ത്രി ഓരോ മേഖലയും തുരിസ്ക പ്രവർത്തിക്കുമ്പോൾ മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കോവിഡിനെതിരെ പോരാടുകയാണ് വേണ്ടി്തെന്നും മന്ത്രി പറഞ്ഞു

മറ്റ് പരിപാടികളിൽ അദ്ദേഹം ഓൺലൈനായി പങ്കെടുക്കും

പുതിയ നിർദ്ദേശമനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മൂന്ന് തവണ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസത്തിനു മുൻപുള്ള ആദ്യ നാല് ദിവസത്തിനുള്ളിൽ ആദ്യത്തെയും അഞ്ച് മുതൽ എട്ടു വരെയുള്ള ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെയും പ്രസിദ്ധീകരണം നടത്തണം

ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും

സുധാകരൻ കേരളത്തിന് ട്രെയിനുകൾ അനുവദിക്കണമെന്നും നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനസ്ഥാപിക്കണ മെന്നും ആവശ്യപ്പെട്ട് മന്ത്രി ജി സുധാകരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി കേരളത്തിൽ നിന്നും തമിഴ്നാട് കർണ്ണാടക സംസ്ഥാനങ്ങളി ലേക്ക് കൂടുതൽ ട്രെയിനുകളും കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എന്നീ ട്രെയിനുകളും ആരംഭിക്കണമെന്നും ശ്രീ സുധാകരൻ കത്തിൽ ആവശ്യപ്പെട്ടു

ഇന്ത്യൻ വ്യവ്സിാ്യ് ്വാണിജ്യ ഫെഡറേഷൻ ഫിക്കിയുടെ ആഭിമുഖ്യത്തിൽ സ്ംഘടിപ്പിച്ച വെബിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകൃത്യായിര്കുന്നു അദ്ദേഹം കാലാവധി നീട്ടി കളിപ്പാട്ടങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയ വിജ്ഞാപനം നടപ്പാക്കുന്നതിനുള്ള സമയം കേന്ദ്ര സർക്കാർ അടുത്ത വർഷം ജനുവരി ഒന്നുവരെ നീട്ടി ഇതു സംബന്ധിച്ച വിജ്ഞാപനം ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് പുറത്തിറക്കി

കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അറുപതു ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജാമൃം അനുവദിച്ചത്

രാജു പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ ഉല്പാദനം സംസ്ഥാന സർക്കാർ സജിവമായി പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി കെ

മനുഷൃരിലും മൃഗങ്ങളിലും ഉപയോഗിക്കുവാൻ കഴിയുന്ന പേവിഷ പ്രതിരോധ മരുന്നു നിർമ്മാണത്തിനുളള പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്

ഇത് നടപ്പിലാക്കുവാൻ കഴിയുന്നതോടെ പേവിഷബാധപ്രതിരോധ രംഗത്ത് മൃഗ്ഗസ്ട്രക്ഷണ മേഖലയ്ക്കു തന്നെ അഭിമാനകരമായ നേട്ടമാകുമ്മീന്ന് മന്ത്രി പറഞ്ഞു ടി

ടി ഐ കളിലെ അടിസ്ഥാന സൌകര്യവും പരിശീലന നിലവാരവും ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ടി

ഐ കളാണ് കിഫ്ബിയുടെ ധനസഹായത്തോടെ ആദ്യഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേയ്ക്ക് ഉയർത്തുന്നത്

വേങ്ങൂർ ഐ

ഐ യുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനം ഓൺലൈനിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു ശ്രീ

യിൽ പ്രവർത്തന സജ്ജമായ ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി സി രവീന്ദ്രനാഥ് ഓൺലൈനായി നിർവഹിച്ചു

ബി

ബി എസ് ഇ വിദ്യാലയങ്ങളിലെയും ഓൺലൈൻ ക്ലാസുകളുടെയും ഓരോ സെഷന്റെയും സമയം പരമാവധി അര മണിക്കൂറായി നിജപ്പെടുത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ

രമേശ് ചെന്നിത്തല സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ലൈഫ് മിഷൻ ക്രമക്കേട് വരെയുള്ള വീഴ്ച്കളിലും അഴിമതികളിലും വൃക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ട ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച് ദേശദ്രോഹ കുറ്റമുൾപ്പെടെ ചുമത്താവുന്ന തരത്തിലുളള ആരോപണങ്ങളുണ്ടായി ഇക്കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയിൽ നിന്നും വൃക്തമായ മറുപടിയാണ് ജനങ്ങൾ ആവശൃപ്പെടു ന്നതെന്നും രമേശ് ചെന്നിത്തല മുഖൃമന്ത്രിക്കയച്ച കത്തിൽ പറയുന്നു

സുരേന്ദ്രൻ അഴിമതിക്കാരെ മന്ത്രി സഭയിൽ നിന്ന് പുറത്താക്കിയാൽ തീരുന്ന സമരം മാത്രമേ സംസ്ഥാനത്ത് നടക്കുന്നുള്ളൂവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സമരം ഭീഷണി കൊണ്ട് അവസാനിക്കില്ല രാഷ്ട്രീയമായി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി പറയാതെ മുഖ്യമന്ത്രി വൃക്തിപരമായി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ശ്രീ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

സ്വർണക്കടത്ത് കേസിൽ ബിജെപിയടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്നും പ്രസമരങ്ങളെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കണ്ണൂരിലും തിരുവനന്തപുരത്തും ക്കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ നരനായാട്ട് അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു

ജലീലിന്റെ രാജിയാവശ്യപ്പെട്ട് കോഴിക്കോട്ട് മഹിളാമാർച്ച് നടത്തി മഹിളാമോർച്ച ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്

എസ് ഇ ബി ഓഫീസിലെ മൂന്ന് പേർക്ക് കൊവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൊവിഡ് ബാധിതരുമായി സമ്പർക്കത്തിൽ ക്ല ഏർപ്പെട്ട പതിനെട്ട് ജീവനക്കാരെ നിരീക്ഷണത്തിൽ പ്രപ്പ്പേശിപ്പിച്ചു ഓഫീസും പരിസരവും പയ്യന്നൂർ അഗ്നിശ്രിമ്ന് സേനാവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കി ഓഹരി വിപണി രാജ്യത്തെ ഓഹരി വിപ്ണികളിൽ ഇന്ന് നേട്ടം